ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

മൻ കി ബാത്തിന്റെ ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്തിന്റെ പരിഭാഷ ഉണ്ടാകും

ഇ

കളിപ്പാട്ട നിർമാണ മേഖലയുട്ടു ഉന്നമത്തിനായി മികച്ച വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാനും കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉറപ്പു വരുത്തിനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിനായി ബ്യൂഗ്പോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പുതിയ ലബോറട്ടറികൾ ആരംഭിക്കും

രാജ്യത്തെ കളിപ്പാട്ട നിർമാണ മേഖലയ്ക്ക് ഊർജ്ജം പകരാനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കളിപ്പാട്ട മേള ഉദ്ഘാടനം ചെയ്തത്

വാക് സിനേഷൻ നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുമായും സംസ്ഥാന ദേശീയ ആരോഗൃമിഷൻ ഡയറക്ടർമാരുമായും വീഡിയോ കോൺഫറൻസ് നടത്തി അംഗീകൃത സ്വകാര്യ ആശുപത്രികൾ വഴി കോവിഡ് വാക്സിനുകൾ നല്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

കേന്ദ്രത്തിന്റെ മാർഗനിർദേശങ്ങളനുസരിച്ച് വാക്സിനേഷൻ നടപടികൾ ് നടപ്പിലാക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുണ്ട്

നിയന്ത്രണങ്ങളിൽ ഇളവ് ഉണ്ടെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ് ചെറിയ അശ്രദ്ധപോലും കഴിഞ്ഞ കൂട്ടു വർഷത്തെ കൂട്ടായ യജ്ഞത്തെ നിഷ്പ്രഭമാക്കാൻ പോക്ടൂന്നതാണെന്നും ശ്രീ ഗൌബ പറഞ്ഞു

തുടർഭരണം ഉറപ്പാക്കാനായി ഭരണമുന്നണിയും ഭരണം പിടിച്ചെടുക്കാൻ പ്രതിപക്ഷവും മുന്നണിതല ചർച്ചകൾ ആരംഭിച്ചു അടുത്ത ആഴ്ച തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് മുതൽ തുടക്കമാകും അധികം വൈകാതെ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും

ഇവർക്കെതിരെ പിന്നീട് ആരെങ്കിലൂം പ്രതികാര നടപടി സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥർ നിവേദഗ്രി നൽകിയാൽ കർശന നടപടി സ്വീകരിക്കും

ലോകോത്തര നിലവാരമുള്ള ഈ മെഡിക്കൽകോളേജ് പ്രവർത്തനത്തിന് അടിത്തറ പാകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

നല്ല സിനിമകൾക്കൊപ്പം പിഴവില്ലാത്ത സംഘാടന മികവുകൊണ്ട് തലശ്ശേരി മേള മികച്ചതായി

കോവിഡ് സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ്

പശ്ചാത്തലത്തിൽ നഗരാതിർത്തികളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

വക്കീലൻമാർ മനുഷ്യാവകാശ പ്രവർത്തകർ വിദേശപൌരൻമാർ കുറ്റാരോപണങ്ങളും തടങ്കലും കുറ്റവിചാരണയും നേരിടുന്നതായും അവർപറഞ്ഞു

എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് അഞ്ചിന് എഫ് സി ഗോവയും ഹൈദരാബാദ് എഫ്

കെ മോഹൻ ബഗാനും തമ്മിലാണ് മത്സരം